എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ചിട്ടിതട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പൊലീസ് കമ്മിഷണറെ ന് സി ബി ഐ ചോദ്യം ചെയ്യുന്നത് മൂന്നാം ദിവസവും തുടരുന്നു

രാജ്യത്ത ് എല്ലാവർക്കും എൽ

ഗ്യാസ് എത്തിക്കാനുള്ള ബ്ലൂ ഫ്ളെയിം വിപ്തവം അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സുതാര്യവും വിപണിക്ക് അനുസൃതവുമായും മാനുഷിക മൂല്യങ്ങൾ കണക്കിലെടുത്തും വേണം എണ്ണ പാചക വാതക മേഖല പ്രവർത്തിക്കാനെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര ഊർജ്ജ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത് ഊർജ്ജോല്പാദന വിതരണ ഉപഭോഗ സംവിധാനങ്ങൾ നിരന്തരം മാറുകയാണ് രാജ്യത്തെ എൽ

ജി

ഊർജ്ജ ഉപഭോഗ തലസ്ഥാനമെന്ന പശ്ചിമ രാജ്യങ്ങളുടെ കുത്തക കിഴക്കൻ രാജ്യങ്ങളിലേക്ക് മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഊർജ്ജ മേഖലയിലെ മാറ്റങ്ങളും വെല്ലുവിളികളും ചർച്ച ചെയ്യാൻ പെട്രോ ടെക് സമ്മേളനവേദി ഏറെ സഹായകരമാണെന്ന പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാവർക്കും ഊർജ്ജനീതി ഉറപ്പുവരുത്താൻ ഇന്ത്യ സത്വര നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക വകുപ്പുമന്ത്രി ധർമേന്ദ്ര പ്രധാൻ പറഞ്ഞു ശുദ്ധമായ പാചക വാതകം ജനങ്ങൾക്കു നൽകുന്നതിൽ ഉജ്ജ്വല പദ്ധതിയും സിറ്റി ഗ്യാസ് വിതരണ ശൃംഖലയും വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു മൂന്നു ദിവസത്തെ പെട്രോ ടെക് സമ്മേളനം ഇന്നലെയാണ് ആരംഭിച്ചത്

നിർദ്ധനരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് അക്ഷയ്പാത്ര്

പരിപാടിയുടെ ഭാഗമായി വൃന്ദാവനിൽ ച്ന്ദ്രോദയ മന്ദിറിൽ ഒരുക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി സംസാരിക്കും ഇസ്ക് കോൺ ആചാര്യൻ ശ്രീല പ്രഭുപാദിന് പ്രധാനമന്ത്രി സ്മരണാഞ്ജലികൾ അർപ്പിക്കും

ശുചിത്വമുള്ള ആരോഗ്യദായകമായ ഭക്ഷണം എത്തിച്ചു നൽകുന്നതിന് മാനവ വിഭവശേഷി മന്ത്രാലയവും സംസ്ഥാന ഗവൺമെൻുകളുമായി സഹകരിച്ചാണ് ഫൌണ്ടേഷൻ പ്രവർത്തിക്കുന്നത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധഞ്ജലി അസാമാന്യ പാടവമുള്ള സംഘാടകനും ദേശസ്നേഹിയുമായിരുന്നു ദീൻദയാൽ ഉപാധ്യായയെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു ദീൻദയാൽ ഉപാധ്യായയുടെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ബി ജെ

രാഷ്ട്രീയത്തിൽ കള്ളപ്പണം ഒഴിവാക്കി സുതാര്യത കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സമർപ്പൺ ദിവസ് എന്നതിലൂടെ ലക്ഷ്യമിടുന്നത്

സഭാനടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്

പ്രതിപക്ഷം ഉത്തർപ്രദേശിലുണ്ടായ വ്യാജ് മദ്യ ദുരന്തത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്റ്മാജ്വാദി പാർട്ടി ബി

പി അംഗങ്ങൾ ബഹളം വച്ചെങ്കിലും രാജ്യസഭാ അധ്യക്ഷൻ എം

ആന്ധ്രാപ്രദേശിന് സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് ടി ഡി പി അംഗങ്ങളും രംഗത്തെത്തി അതിനിടെ കേന്ദ്രമന്ത്രി ജുവൽ ഓറം പട്ടിക വർഗ്ഗവിഭാഗത്തിനായുള്ള മൂന്നാം ഭരണ ഘടനാ ഉത്തരവ് ഭേദഗതി ബില്ലും കേന്ദ്ര വിദേശകാര്യമന്ത്രി സഷമ സ്വരാജ് എൻ

ഇന്ത്യക്കാരുടെ വിവാഹ രജിസ്ട്രേഷൻ ബില്ലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങളും ബഹളമുണ്ടാക്കി

ആരോപണവിധേയരായ ഇരുവരെയും ഇന്നലെ മുഖാമുഖം ഇരുത്തി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു

ചിട്ടിതട്ടിപ്പ് കേസ് സി ബി ഐ ക്ക് കൈമാറുന്നതിനു മുമ്പ് അന്വേഷിച്ചിരുന്നത് രാജീവ് കുമാറിന്റെ നേതൃത്തിൽ ബംഗാൾ ഗവൺമെന്റ് രൂപീകരിച്ച പ്രത്യേക കേസിൽ തെളിപ്പുകൾ രാജീവ് സുപ്രധാന കുമാർ നശിപ്പിച്ചെന്നാണ് സിബിഐ യുടെ ് ആരോപണം

ബി ഐ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ചാണ് ഹർജി തള്ളിയത് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ കമ്മിറ്റി രൂപീകരിക്കാൻ നിക്ഷേപകർക്ക് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വൃക്തമാക്കി

ബി ഐ ക്ക് കൈമാറിയത്

സംസ്ഥാനത്ത് നിക്ഷേപം ഇറക്കാൻ വരുന്നവർ നാടിനെ സഹായിക്കാൻ വരുന്നവരാണ് എന്ന ധാരണ നമുക്ക് ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിക്ഷേപകർ ചൂഷകരമല്ല എന്ന ധാരണ ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും സംസ്ഥാനത്ത് നിക്ഷേപം ഇറക്കുന്നവർക്ക് ഉണ്ടാകണം

പ്രളയത്തിൽ തകർന്ന മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നടുവത്ത് വടക്കും പാടം റോഡ് ഇന്ന് പൂർണ്ണമായുട് ഗതാഗതയോഗ്യമായി

പോലീസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ സഞ്ജയ് സിങ്കാൾ അന്വേഷണത്തിന് നേതൃത്വം നൽകും

എന്നാൽ മഞ്ഞുവീഴ്ച ഉൾപ്പെടെയുള്ള മോശം കാലാവസ്ഥ തുടക്കത്തിൽ തീവ്രത കൈവരിക്കില്ലെന്ന് കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ സോനം ലോട്ടസ് ആകാശവാണിയോട് പറഞ്ഞു

സ്വർണവിലയിൽ മാറ്റമില്ല